ഉയർന്നു നിൽക്കുമെന്ന് മുന്നറിയിപ്പ്

ഡോസ് കോവിഡ് വാക്സിൻ കൂടി എത്തി

രൂപീകരണ ചർച്ചകൾ തുടരുന്നു

മാർ ക്രിസോസ്റ്റത്തിന് ആദരാജ്ഞലിയർപ്പിച്ച് പ്രധാനമന്ത്രി മുഖൃമന്ത്രി തുടങ്ങിയ പ്രമുഖർ

മഴയും ഇടിമിന്നലും തുടരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ സൂചന

അടച്ചുപൂട്ടലിന് സമാനമായ നിയന്ത്രണങ്ങളാണ് ഞായറാഴ്ച വരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്

അവശ്യ സേവനങ്ങൾക്കു മാത്രമാണ് ഇളവ് നൽകിയിട്ടുള്ളത് കോവിഡ് രണ്ടാം തരംഗത്തിൽ ഗ്രാമീണ മേഖലകളിലും രോഗവൃാപനം ഉയരുന്ന സാഹചര്യമുണ്ട് കോവിഡ് സ്ഥിരീകരണ നിരക്കിൽ ഉണ്ടാകുന്ന വർദ്ധന മുൻനിർത്തി സംസ്ഥാനത്ത് രോഗവ്യാപനം ഏറ്റവും ഉയർന്ന നിലയിലെത്താൻ ഇനിയും സമയമെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഇക്കാര്യം തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണമെന്നു്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് ജില്ലകളിൽ രോഗവ്യാപനം വരും ദിവസങ്ങളിൽ തീവ്രമാകാൻ സാധ്യതയുണ്ട്

നാല് ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിനാണ് ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയത്

എത്തിയ വാക്സിൻ എറണാകുളം കോഴിക്കോട് മേഖലകളിലേക്ക് ഇന്ന് കൈമാറും അതേസമയം കോവിഡ് വാക്സിൻ നൽകേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു സംസ്ഥാനത്തിന് ലഭിച്ച മുഴുവൻ വാക്സിനും നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു

വാക്സിൻ സ്വീകരിക്കുന്നതിലൂടെ രോഗവ്യാപന നിരക്കും മരണസാധ്യതയും കുറയ്ക്കുമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോ അനീഷ് ടി എസ് ആകാശവാണി വാർത്തകളോട്

ആലപ്പുഴ ജനറൽ ആശുപത്രി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രി അമ്പലപ്പുഴ ചേർത്തല ചുനക്കര ഹരിപ്പാട് കുറത്തിക്കാട് മാവേലിക്കര മുതുകുളം പാണ്ടനാട് പുളിങ്കുന്ന് തണ്ണീർമുക്കം തുറവൂർ തൈക്കാട്ടുശ്ശേരി എന്നിവിടങ്ങളിലെ സർക്കാർ ആശുപത്രികളുമാണ് വാക്സിൻ കുത്തിവയ്പ്പ് കേന്ദ്രങ്ങൾ കോഴിക്കോട് ഓക്സിജൻ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വൃാപനം രൂക്ഷമാകുന്ന സാഹചരൃത്തിൽ ആരോഗൃ സ്ഥാപനങ്ങളിൽ ഓക്സിജൻ ലഭൃത ഉറപ്പു വരുത്തുന്നതിനായി തദ്ദേശസ്യുട്ടുഭർണ സ്ഥാപനങ്ങൾക്ക് മാർഗ്ഗ നിർദ്ദേശങ്ങൾ നൽകി

രോഗികളിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് കൊണ്ട് ആരോഗൃ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്

ഇന്ന് നടക്കുന്ന സിപിഐഎം പോളിറ്റ് ബ്യൂറോ യോഗം മന്ത്രിസഭയ്ക്ക് അന്തിമരൂപം നൽകുമെന്നാണ് പ്രതീക്ഷ

പുതിയ മന്ത്രിസഭയിൽ കൂടുതൽ പുതുമുഖങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന

മുരളീധരൻ നേമത്ത് ബിജെപിയുടെ അക്കൌണ്ട് പൂട്ടാനായതിൽ സന്തോഷമെന്ന് കോൺഗ്രസ് നേതാവും എം

ന്യൂനപക്ഷ ഏകീകരണം എൽ ഡി

ബിജെപിയുടെ വോട്ടുകൾ എൽ

സംസ്ക്കാര ചടങ്ങുകൾ നാളെ പകൽ മൂന്ന് മണിക്ക് തിരുവല്ല മാർത്തോമ്മ സഭാ ആസ്ഥാനത്തെ പള്ളിയിൽ നടക്കും തുടർന്ന് എസ്

എസ് കുന്നിൽ ബിഷപ്പുമാർക്കുള്ള പ്രത്യേക അന്ത്യവിശ്രമ സ്ഥാനത്ത് ഖബറടക്കും

ശ്രേഷ്ഠമായ ദൈവശാസ്ത്ര പരിജ്ഞാനവും മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ ദൂരീകരിക്കാനുള്ള ശ്രമങ്ങൾക്കും വലിയ മെത്രാപ്പൊലീത്ത എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു

വേദനിക്കൂന്നവരുടെ കണ്ണീരൊപ്പുക ഭാരം താങ്ങുന്നവന് ആശ്വാസം ന്യൂർകുക എന്നിവയായിരുന്നു ക്രിസ്തുവിന്റെ വഴിക്ക് സ്ഞ്ച്രീച്ച വലിയ മെത്രാപ്പൊലീത്തയുടെ നിലപാടെന്ന് മുഖ്യമന്ത്രിട്അ്നുശോചന സന്ദേശത്തിൽ പറഞ്ഞു

കെ ശൈലജ തുടങ്ങിയവർ അനുശോചിച്ചു

കോൺഗ്രസ് നേതാക്കളായ രാഹുൽഗാന്ധി വി

സുധീരൻ ശശി തരൂർ എം പി തുടങ്ങിയവർ അനുശോചിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ ജില്ലാ പ്രതിനിധി കെ

വയനാട് പൃത്തനംതിട്ട ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടുണ്ട് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധൃതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു